എ എറണ്ട്രികുളത്തും പശ്ചിമ ബംഗാളിലും നടത്തിയ തെരച്ചിലിൽ ഒൻപത് അൽ ഖയ്ദ ഭീകരരെ അറസ്റ്റ് ചെയ്തു

ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഐ

ഈ വർഷം ജൂണിൽ ഇറങ്ങിയ ഓർഡിനൻസിന് പകരമായാണ് ബില്ല് കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ബില്ല് അടുത്ത ദിവസമാണ് പരിഗണനയ്ക്ക് വരുന്നതെന്നും ചർച്ച അന്ന് നടത്താമെന്നും രാജ്യസഭാ ചെയ്ർമാൻ വെങ്കയ്യനായിഡു മറുപടി നൽകി പാകിസ്താൻ ഭീകരപ്പാടം സംബന്ധിച്ച വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച ബിജെപി എപ്പി് സാമ്പിത് പത്ര വിഷയം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ൃശ്ദ്ധയിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു പാപ്പരത്ത ഭേദഗതി നിയമം എൻഡിഎ ഗവൺമെന്റിന്റെ നിർണായിക്ക ചുവടുവെപ്പ് ആയിരുന്നുവെന്നും സുഗമമായ ബിസിനസ് നട്ടത്തിപ്പ് സംബന്ധിച്ച റാങ്കിംഗ് മെച്ചപ്പെട്ടത് ഈ ബില്ലിന്റെ വിജയമാണ്ണും ബിജെപി എംപി അരുൺ സിംഗ് രാജ്യസഭയിൽ പറഞ്ഞു എന്നാൽ ഗവൺമെന്റ് വലിയ കോർപറേറ്റുകളെ ആണ് സഹായിക്കാൻ ശ്രമിക്കുന്നതെന്നും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിയമംമൂലം ബുദ്ധിമുട്ടും എന്നും കോൺഗ്രസ് എംപി വിവേക് തൻങ്ങാ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന് ടി

സി എൻ സി

എം

സി എം

കോവിഡ് വ്യാപനം തടയാൻ സഭാംഗങ്ങളും ഉദ്യോഗസ്ഥരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ശുചിത്വം ഉറപ്പാക്കുകയും വേണമെന്ന് ചർച്ചയ്ക്കുശേഷം ശ്രീ വെങ്കയ്യ നായിഡു രാജ്യസഭയെ അറിയിച്ചു

പാർലമെന്റിൽ തയ്യാറാക്കിയിട്ടുള്ള കോവിഡ് പരിശോധനാ സൌകര്യങ്ങൾ അംഗങ്ങൾ ഉപയോഗിക്കണം

കേരള ത്തിൽ നിന്നു അറസ്റ്റ് ചെയ്തവർ ബംഗാൾ സ്വദേശികൾ തന്നെയാ ണെന്നാണ് റിപ്പോർട്ട് ഇവരുടെ പക്കൽ നിന്നും വൻ തോതിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും ജിഹാദി ലേഖനങ്ങളും ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് പശ്ചിമബംഗാളിലും കേരളത്തിലും ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അൽ ഖയ്ദയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എൻ ഐ എ ഇന്ന് പരിശോധന നടത്തിയത് രാജ്യതലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയുടെ പല പ്രധാന സ്ഥലങ്ങളിലും ഭീകരാക്രമണം നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നതായി എൻഐഎ കണ്ടെത്തി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇവരെ തീവ്രവാദത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ

ലോകത്തുതന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പുരാതന സർവകലാശാലകൾ ആയ നളന്ദയും തക്ഷശിലയും നിലനിന്നി രുന്ന നാടാണ് നമ്മുടേത് എന്നാൽ ഇന്ന് നമ്മുടെ ഉന്നതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ആഗ്ലോള റാങ്കിംഗിൽ മികച്ച നിലയിലെത്താൻ സാധിക്കുന്നില്ലെന്നൂർ രാീഷ്ടപതി പറഞ്ഞു പുതിയ വിദ്യാഭ്യാസനയം ശ്രീർജ്യത്തെ ഗവേഷണവും കണ്ടുപിടുത്തവും വർധിപ്പിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് പറഞ്ഞു

കോവിഡ് രൂക്ഷമായി തുടരുന്ന മഹാരാഷ്ട്രയിൽ മൂന്നു ലക്ഷത്തിലേറെ പേർ ചികിത്സയിലുണ്ട്

ആഗോളതലത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്

എസിനെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൃത്യതയാർന്ന നിരീക്ഷണത്തിലൂടെയും തുടർ പ്രവർത്തനത്തിലൂടെയും മികച്ച ചികിൽസാ സൌകര്യ മൊരുക്കിയുമാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി

വൃത്തിയുള്ള കടൽ തീരങ്ങൾ ആണ് പരിസ്ഥിതി സൌഹാർദ്ദ തീര പ്രദേശങ്ങളുടെ മുഖമുദ്ര എന്നും ഇന്തൃയിലെ മിക്ക കടൽത്തീരങ്ങളും ലോകത്തെ തന്നെ മികച്ചവയാണെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഐപിഎൽ മത്സരങ്ങൾ യു

സെർബിയൻ താരം തുസാൻ ലാജോവിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് നദാലിന്റെ മുന്നേറ്റം

ക്വാർട്ടർ ഫൈനലിൽ എട്ടാം സീഡ് അർജൻറീനൻ താരം ഡീഗോ ഷാർട്ട്സ്മാൻ ആണ് നദാലിന്റെ എതിരാളി